കോവിഡ് രോഗികളേക്കാൾ രോഗമുക്തരായവരുടെ എണ്ണം കൂടി

പ്ലസ് വൺ സീറ്റുകളും വർധിപ്പിക്കും

കോഴിക്കോട്ടും വയനാട്ടിലും ഇന്ന് റെഡ് അലർട്ട്

ടി നാരായണൻ മൂസ് അന്തരിച്ചു

സമ്പർക്ക രോഗികളുടെ എണ്ണം ഇന്നലെയും കൂടുതലാണ്

ഏഴു പേർ മരിച്ചതായാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചത്

കള്ളിക്കാട് വെള്ളറട നെയ്യാറ്റിൻകര മുനിസിപ്പാലിറ്റി എന്നീ ലിമിറ്റഡ് ക്ലസ്റ്ററുകൾ ലാർജ് കമ്മ്യൂണിറ്റി ക്ലസ്റ്ററുകളായി മാറാനും സാധ്യതയുണ്ട് പത്തനംതിട്ട ജില്ലയിൽ പുറമറ്റത്ത് ലിമിറ്റഡ് കമ്മ്യൂണിറ്റി ക്ലസ്റ്റർ രൂപപ്പെട്ടതായും മുഖ്യമന്ത്രി അറിയിച്ചു

എറണാകുളത്ത് ആലുവ ക്ലസ്റ്ററിലും ഫോർട്ട് കൊച്ചി മേഖലകളിലും രോഗ വ്യാപനം തുടരുകയാണ് തൃശൂർ ജില്ലക്ക് പുറത്തെ പട്ടാമ്പി ക്ലസ്റ്ററിൽ നിന്ന് സമ്പർക്ക രോഗബാധിതരാകുന്നവരുടെ എണ്ണം വർധിക്കുന്നുണ്ട്

രുദ കോഴിക്കോട് ബീച്ച് ജനറൽ ആശുപത്രിയിൽ ഈ ആഴ്ച തന്നെ കോവിഡ് ചികിത്സ തുടങ്ങുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു

പികൾ പൂർണമായും ഗവൺമെന്റ് നേഴ്സിങ് കോളേജിലേക്ക് മാറ്റുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്ന് മന്ത്രി കോഴിക്കോട്ട് അറിയിച്ചു രേര എറണാകുളത്ത് കോവിഡ് പ്രഥമ ചികിത്സാ കേന്ദ്രങ്ങളുടെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് രൂപ രേഖ തയാറാക്കിയതായി മന്ത്രി വി

ഇതിനായി നോഡൽ ഓഫീസർമാരെ നിയമിച്ചതായി മന്ത്രി പറഞ്ഞു രേര എറണാകുളം ഗവൺമെന്റ് മെഡിക്കൽ കോളജിൽ കോവിഡ് ചികിത്സയിലായിരുന്ന എളമക്കര പ്ലാശ്ശേരി പറമ്പിൽ പി

ഗുരുതരാവസ്ഥയിലാണ് ഇവരെ ചൊവാഴ്ച രാത്രി കോഴിക്കോട് മെഡിക്കൽ കോളെജിൽ പ്രവേശിപ്പിച്ചത് രുമ സമ്പർക്കത്തിലൂടെ കോവിഡ് വ്യാപനം വർധിക്കുന്ന സാഹചര്യത്തിൽ കാസർകോട് ജില്ല അതീവ ജാഗ്രതയിലേക്ക് കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി പി

നിലവിൽ പോസിറ്റീവ് കേസുകൾ ഒരു ശതമാനമായി കുറഞ്ഞതായും ഉറവിടം അറിയാത്ത രണ്ട് കേസുകൾ മാത്രമാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തതെന്നും നോഡൽ ഓഫീസർ പറഞ്ഞു രുദ കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിനായി ദേശീയ ഹെൽത്ത് മിഷന്റെ കീഴിൽ കരാർ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമിക്കപ്പെടുന്നവരുടെ ആനുകൂല്യങ്ങൾ വർധിപ്പിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു ഇൻസന്റീവും റിസ്ക് അലവൻസും ഇവർക്ക് ഏർപ്പെടുത്തിയതായി മുഖ്യമന്ത്രി പറഞ്ഞു കൂടുതൽ വിവരങ്ങളുമായി ജഷിത കുമാരി

ഗവൺമെന്റ് എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ പ്ലസ് വൺ കോഴ്സിന് സീറ്റ് വർധിപ്പിക്കും

രാത്രി ഏഴു മണി മുതൽ രാവിലെ ആറു മണി വരെ രാത്രി ഷിഫ്റ്റുകളിൽ സ്ത്രീകൾക്ക് ഫാക്ടറികളിൽ ജോലി ചെയ്യാൻ അനുമതി നൽകുന്നതിന് നിയമഭേദഗതിക്ക് ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നതിന് ഗവർണറോട് ശുപാർശ ചെയ്യാനും മന്ത്രിസഭ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് ആകാശവാണി രും ഇടുക്കി ജില്ലയിൽ നിയമിച്ച ആരോഗ്യ വകുപ്പ് ജീവനക്കാർ ഡെപ്യൂട്ടേഷൻ അവസാനിപ്പിച്ച് ജോലിക്കെത്തണമെന്ന് മന്ത്രി എം

ഡെപ്യൂട്ടേഷനിൽ ഇതര ജില്ലകളിലേക്ക് പോയവരുടെ പട്ടിക മന്ത്രി ആരോഗ്യ വകുപ്പ് അധികൃതരോട് ആവശ്യപ്പെട്ടു

വടക്കൻ കേരളത്തിൽ മഴയും ശക്തമായ കാറ്റും തുടരുകയാണ് ഞായറാഴ്ച വരെ കനത്ത മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട്ടും വയനാട്ടിലും ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു കാസർകോട് കണ്ണൂർ മലപ്പുറം പാലക്കാട് തൃശൂർ ഇടുക്കി എറണാകുളം ജില്ലകളിൽ ഞായറാഴ്ച വരെ ഓറഞ്ച് അലർട്ടാണ് കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട കൊല്ലം തിരുവനന്തപുരം ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു പല നദികളും കരകവിഞ്ഞൊഴുകുന്നു

രുമ റെഡ് അലർട്ട് നിലനിൽക്കുന്ന ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലകളിലുള്ളവരെ മുൻകരുതലിന്റെ ഭാഗമായി മാറ്റി താമസിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു നീലഗിരി കുന്നുകളിൽ അതിതീവ്ര മഴ പെയ്യുന്നത് വയനാട് മലപ്പുറം ജില്ലയുടെ കിഴക്കൻ മേഖലയിലും പാലക്കാട് ജില്ലയുടെ വടക്ക് കിഴക്കൻ മേഖലയിലും അപകടസാധ്യത വർധിപ്പിക്കും ഇടുക്കി ജില്ലയിൽ കനത്ത മഴ പെയ്യുന്നത് എറണാകുളം ജില്ലയെയും ബാധിക്കാനിടയുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു

ദ്ദേ കനത്ത മഴയെ തുടർന്ന് നിലമ്പൂർ ആഢ്യൻപാറയിൽ ഉരുൾപൊട്ടി ഇന്നലെ വൈകീട്ടാണ് കാഞ്ഞിരപ്പുഴയോടു ചേർന്ന് ഉരുൾപൊട്ടിയത്

രുര ശക്തമായ മഴയിലും കാറ്റിലും മലപ്പുറം ജില്ലയിൽ വ്യാപക നാശനഷ്ടം ചാലിയാറും കടലുണ്ടിപ്പുഴയും ഭാരതപ്പുഴയും തൂതപ്പുഴയും നിറഞ്ഞു പോഷക നദികളിലും ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നതോടെ ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജമായി ശക്തമായ കാറ്റിൽ കടപുഴകിയ മരക്കൊമ്പ് മാറ്റുന്നതിനിടെ വൈദ്യുതാഘാതമേറ്റ് മലപ്പുറം മേൽമുറിയിൽ യുവാവ് മരിച്ചു

മരങ്ങൾ കടപുഴകി വീണതോടെ ദേശീയപാതയിൽ ഉൾപ്പെടെ പ്രധാന റോഡുകളിൽ ഗതാഗതം തടസ്സപ്പെട്ടു

പാതാറിലെ തോട്ടിൽ വെള്ളം ക്രമാതീതമായി ഉയരുകയാണ് കഴിഞ്ഞ വർഷം വലിയ നാശംവിതച്ച പ്രദേശമാണിത് ദേദ ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ മൂവാറ്റുപുഴയാറിന്റെ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു ജലനിരപ്പ് അപകട നിലക്ക് മുകളിൽ ഉയർന്ന തൊടുപുഴയാർ കാളിയാർ പുഴ കോതമംഗലം പുഴ എന്നിവയുടെ തീരങ്ങളിൽ താമസിക്കുന്നവർക്കും ജാഗ്രത നിർദേശം നൽകിയിട്ടുണ്ട് കുട്ടമ്പുഴ കടവൂർ നേര്യമംഗലം എന്നീ വില്ലേജുകളിൽ മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്ന പ്രദേശങ്ങളിലെ കുടുംബങ്ങളെ ക്യാംപുകളിലേക്ക് മാറ്റുന്നതിന് ജില്ലാ ഭരണകൂടം നിർദേശം നൽകി

ഇരുപതോളം വീടുകൾ തകർന്നു റോഡുകളിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു അണക്കെട്ടുകളിൽ ജലനിരപ്പ് ഉയരുകയാണ്

നദികളുടെ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു രദേ വയനാട്ടിൽ മേപ്പാടിയിലും പുത്തുമലയിലും ശക്തമായി മഴ പെയ്യുന്നതിനാൽ ചാലിയാർ പൂനൂർ പുഴകളുടെ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് കോഴിക്കോട് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു

തിരുവമ്പാടി കാരശ്ശേരി കൊടിയത്തൂർ പ്രദേശങ്ങളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്

ഷട്ടറുകൾ തുറന്ന് മലവായി തോട്ടിലേക്ക് വെളളം ഒഴുക്കുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് കലക്ടർ അറിയിച്ചു

ദരദ തൃശ്ശൂർ തൈക്കാട്ടുശേരി വൈദ്യരത്നം ഗ്രൂപ്പ് ചെയർമാൻ അഷ്ടവൈദ്യൻ ഇ

നാരായണൻ മൂസ് അന്തരിച്ചു

ആയുർവേദ ചികിത്സാ രംഗത്ത് നൽകിയ സംഭാവനകൾക്ക് രാഷ്ട്രം പത്മഭൂഷണും പ്രധാനമന്ത്രിയുടെ സ്വദേശി പുരസ്കാരവും നൽകി ആദരിച്ചിട്ടുണ്ട് സംസ്കാരം രാവിലെ ഒമ്പതിന് ഔദ്യോഗിക ബഹുമതികളോടെ നടക്കും